കർണാടക നിയമസഭയിൽ വീശ്വാസ വോട്ടിന്മേൽ ചർച്ച കഴിഞ്ഞു മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മറുപടി പ്രസംഗം നടത്തുന്നു

ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ സായ് പ്രണീത് രണ്ടാം റൌണ്ടിൽ

പട്ടിക ഇരുപത് ശതമാനമെങ്കിലും പുനഃപരിശോധന നടത്തണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി പട്ടികയിൽ തെറ്റായി ഉൾപ്പെട്ടിട്ടവരും ഉൾപ്പെടാത്തവരും ആയവരുടെ വിവരങ്ങൾ പുനഃപരിശോധിയ്ക്കണമെന്ന അസം ഗവൺമെന്റിന്റേയും കേന്ദ്ര ഗവൺമെന്റിന്റേയും ആവശ്യമാണ് കോടതി തള്ളിയത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി ജസ്റ്റിസ് ആർ എഫ്

അസം പൌരത്വ രജിസ്റ്റർ ഏകോപന സമിതി അധ്യക്ഷൻ പ്രതീക് ഹജേലയാണ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയത് പൌരത്വ രജിസ്റ്റർറിന് സമയം നീട്ടി നൽകണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ ധാരാളം അനധികൃത കുടിയേറ്റക്കാർ പട്ടികയിൽ കടന്നു കൂടിയിട്ടുള്ളതിനാൽ പുനഃപരിശോധന ആവശ്യമാണെന്ന് ഗവൺമെന്റുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി

പ്രധാനമന്ത്രി് നേരിട്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും ബഹളം വച്ചു എന്നാൽ പ്രശ്നപരിഹാരത്തിന് സഹായം വാഗ്ദാനം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് അമേരിക്ക വിശദീകരിച്ചു കാശ്മീർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപിനോട് ഒരു സഹായവും തേടിയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു

കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെ സഹായം തേടിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ വിശദീകരണം നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രി എന്നാൽ യു എസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരണം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം

വിഷയത്തിൽ ഉണ്ടായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ രണ്ടി മണിക്ക് പിരിഞ്ഞു

വിഷയത്തിൽ ചോദ്യോത്തര വേളയ്ക്കു ശേഷം ഉത്തരം നൽകാമെന്ന് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ളാദ് ജോഷി പറഞ്ഞു ട്രംപിന്റെ വിവാദ പ്രസ്താവനയിൽ വിശദീകരണം വേണമെന്ന് പ്രതിപക്ഷം ലോക്സഭയിലും ആവശ്യമുന്നയിച്ചു കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ നേരത്തേ വൃക്തമാക്കിയിരുന്നു മൂന്നാമത് ഒരു കക്ഷി അതിർത്തി തർക്കത്തിൽ ഇടപെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് ഇന്ത്യയുടെ സുസ്ഥിരമായ നിലപാട്

ഇതിനായി പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതേ തുടർന്ന് രാജ്യസഭാ നടപടികൾ തുടർച്ചയായി നിർത്തി വച്ചു

പ്രധാനമന്ത്രി സഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാനബി ആസാദ് ആവശ്യപ്പെട്ടു വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വിഷയത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും സഭ അടുത്ത നടപടികളിലേയ്ക്ക് പോകേണ്ടതുണ്ടെന്നും ഉപാധ്യക്ഷൻ പറഞ്ഞു എന്നാൽ കോൺഗ്രസ് ഇടത് സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ മറുപടിയിൽ തൃപ്തരാകാതെ സഭയിൽ നിന്നിറങ്ങിപ്പോയി നേരത്തെ സഭാ നേതാവ് തവർചന്ദ് ഗഹ്ലോട്ട് പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരാകരിക്കുകയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയത്തിൽ വൃക്തമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു

കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ സഭയിൽ പറഞ്ഞു എന്നാൽ ഗവൺമെന്റിന്റെ പ്രസ്താവനയിൽ പ്രതിപക്ഷം തൃപ്തരല്ലെന്നും പ്രധാനമന്ത്രി സഭയിൽ ഹാജരായി മറുപടി നൽകണമെന്നും കോൺഗ്രസംഗം ആനന്ദ് ശർമ്മ ആവശ്യപ്പെട്ടു കോൺഗ്രസ് അംഗങ്ങളെ കൂടാതെ ഇടത് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി തുടങ്ങിയ കക്ഷികൾ സഭ പിരിയുന്ന മൂന്ന് മണിവരേയും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളത്തിൽ ഉച്ചയ്ക്ക് മുമ്പായി സഭ രണ്ട് തവണ നിർത്തി വയ്ക്കേണ്ടിയും വന്നു രാവിലെ അഞ്ച് സ്വർണ മെഡൽ നേട്ടം കൈവരിച്ചു കായികതാരം ഹിമ ദാസിനെ ഉപരിസഭ അഭിനന്ദിച്ചിരുന്നു

വിഷയത്തിൽ പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് ശ്രീ ജാവദേക്കർ പറഞ്ഞു

കാർഷിക രംഗത്തിന്റെ സമൂലമാറ്റത്തിനായി മുഖ്യമന്ത്രിമാരടങ്ങിയ ഉന്നതതല സമിതി രൂപവത്ക്കരിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു സമിതിയുടെ ആദ്യയോഗം നടന്നു കഴിഞ്ഞു കാർഷിക രംഗത്ത് നടപ്പിലാക്കേണ്ട സമയബന്ധിതമായ പ്രവർത്തനങ്ങളാണ് സമിതിയുടെ ആദ്യ അജണ്ടയായി ചർച്ച ചെയ്തത്

കർഷകർക്കുള്ള പെൻഷൻ പദ്ധതി മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ അംഗീകരിച്ചിരുന്നു രാജ്യത്തെ എല്ലാ കർഷകർക്കും ആറായിരം രൂപ ധനസഹായമെന്ന പ്രധാനമന്ത്രി കർഷ പദ്ധതി ഗവൺമെന്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനമാണ്

പ്രമേയത്തിൻമേൽ നടന്ന മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി കുമാരസാമി രാജിസന്നദ്ധത അറിയിച്ചു നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതിയിൽ നിരാശ തോന്നുന്നുവെന്നും ശ്രീ

വിശ്വാസവോട്ട് നേടാനായില്ലെങ്കിലും കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് തന്നെ സഭയിൽ വിശ്വാസവോട്ട് നടന്നേക്കുമെന്നാണ് പ്രതീക്ഷ ഇന്നലെ തന്നെ വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സ്പീക്കർ ആവശൃപ്പെട്ടെങ്കിലും ചർച്ച നീണ്ടുപോയതിനാൽ വോട്ടെടുപ്പ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു അതിനിടെ മുംബൈയിലുള്ള വിമത എം എൽ എമാർ സഭയിലെത്താൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു

ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ എന്നിവർ ഒഴികെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പദ്മാ പുരസ്കാരത്തിന് അർഹരല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി

ത്രിശൂൽ ഡിവിഷണൻ ജനറർ കമാന്റിംഗ് ഓഫീസർ മേജർ ജനറൽ സഞ്ജീവ് റായ് ദീപശിഖായോടൊപ്പം യാത്രംഗങ്ങളെ സ്വാഗതം ചെയ്തു

ഒരു റിപ്പോർട്ട് വോയിസ് ആദ്യ റൌണ്ടിൽ ജപ്പാന്റെ കെന്റോ നിഷിമോട്ടോയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജ്യപ്പെടുത്തിയാണ് സായ് രണ്ടാം റൌണ്ടിൽ കടന്ന്ത്

അതേസമയം പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യൻ ജോഡികളായ മനു അത്രി സുമിത് ബി റെഡ്സി സഖ്യം മലേഷ്യൻ ജോഡികളോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി

സിന്ധുവും കിടംബി ശ്രീകാന്തും സിംഗിൾസ് വിഭാഗത്തിൽ നാളെ മത്സരിക്കാനിറങ്ങും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധന തേർഡ് പാർട്ടി ഇൻഷുറൻസ് സംബന്ധിയായ പ്രശ്നങ്ങൾ വാടക വാഹന നിയന്ത്രണം റോഡ് സുരക്ഷ തുടങ്ങിയവയാണ് ഭേദഗതിയിലുള്ളത്